കൊല്ലം ജില്ലയിൽ ആറു പേർക്കും കാസർകോട് തിരുവനന്തപുരം ജില്ലകളിൽ രണ്ടുപേർക്ക് വീതവുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്

ഈ സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകർ അപകടരഹിതമായി വാർത്താശേഖരണം നിർവ്വഹിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു

കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന പദ്ധതി തദ്ദേശസ്ഥാപനങ്ങളുടെ ന്നേതൃത്വത്തിലാണ് നടപ്പാക്കുക സംസ്ഥാനത്തിന്റെ ഭക്ഷ്യസ്മുരക്ഷ ഉറപ്പുവരുത്തുക കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക തുടങ്ങിയവ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു കന്നുകാലി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും പാല് മുട്ട എന്നിവയുടെ ഉത്പാദനം ഉയർത്തുന്നതിനും മത്സ്യകൃഷി മെച്ചപ്പെടുത്തുന്നതിനും പദ്ധതി പരിഗണന നൽകും

അഞ്ച് മാസങ്ങളിലായി പ്രതിമാസം ആറ് ദിവസങ്ങളിലെ ശമ്പളമാണ് മാറ്റിവയ്ക്കുന്നത് ഇത് സംബന്ധിച്ചു സർക്കാർ ഉത്തരവിന് നിയമ പ്രാബലൃം പോരാ എന്ന ഹൈക്കോടതി ഉത്തരവിന്റെ സാഹചര്യത്തിലാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി സംസ്ഥാനം അസാധാരണ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

എൽ

തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർഡ് വിഭജന ജോലികൾക്ക് തടസ്സം നേരിടുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള വാർഡുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നട്ട്ത്തുന്നതിനുള്ള ഓർഡിനൻസും ഗവർണറുടെ പരിഗണന്റയ്ക്ക് അയച്ചിട്ടുള്ളതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി തോമസ് ഐസക് സംസ്ഥാന സർക്കാർ ജീവ്യനിക്കാർുടെ ഈ മാസത്തെ ശമ്പളം ഓർഡിനൻസ് വന്നശേഷ്മാകും നൽകുകയെന്ന് ധനമന്ത്രി തോമസ് ഐസക്

ഹൈക്കോടതി പറഞ്ഞ പ്രകാരമാണ് നിയമം കൊണ്ടുവന്നതെന്നും ശ്രീ തോമസ് ഐസക് പറഞ്ഞു

മടങ്ങിയെത്തുന്ന ആളുകളെ വീടുകളിലോ പ്രത്യേക നിരീക്ഷണ കേന്ദ്രങ്ങളിലോ കാറന്റൈനിൽ പാർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് മാസ്ക് പിഴ സംസ്ഥാനത്ത് നാളെ മുതൽ പൊതുസ്ഥലങ്ങളിലും ജോലിസ്ഥലങ്ങളിലും മാസ്ക് നിർബന്ധമാക്കി

വീടുകളിൽ നിർമ്മിച്ച തുണികൊണ്ടുളള മാസ്ക് തോർത്ത് കർച്ചീഫ് എന്നിവയും ഉപയോഗിക്കാവുന്നതാണ്

കഴിഞ്ഞ തിങ്കളാഴ്ച്ചയാണ് രജിസ്ട്രാർ ജനറൽ ഇതുസംബന്ധിച്ച കത്ത് ധന്യകാര്യ് സെക്രട്ടറിക്ക് അയച്ചത്

പിടിഎസ്ബി അക്കൌണ്ട് നമ്പരിലെ അവസാന അക്കത്തെ അടിസ്ഥാനമാക്കിയാണ് പെൻഷൻ വിതരണം ഒരു സമയം ട്രഷറി ക്യാഷ് ടെല്ലർ കൌണ്ടറുകൾക്കു സമീപം പരമാവധി അഞ്ച് പേരെ മാത്രമാകും അനുവദിക്കുക

ഇടപാടുകൾക്കായി ട്രഷറികളിലെത്തുന്ന എല്ലാവരും ട്രഷറിയിൽ പ്രവേശിക്കുന്നതിനു മുൻപ് സോപ്പോ ഹാൻഡ് സാനിറ്റൈസറുകൾ ഉപയോഗിച്ചോ കൈകൾ അണുവിമുക്തമാക്കക്കണം

ട്രഷറികളിൽ നേരിട്ടെത്താൻ കഴിയാത്തവർക്ക് വൃക്തിഗത ബാങ്ക് അക്കൌണ്ടുകളുടെ വിശദവിവരങ്ങൾ ഒപ്പിട്ട ചെക്കിനോടൊപ്പം സമർപ്പിച്ചാൽ ആവശ്യപ്പെടുന്ന തുക ബാങ്ക് അക്കൌണ്ടിലേക്ക് നൽകും അപേക്ഷ നൽകുന്ന പെൻഷൻകാർക്ക് അവരുടെ അക്കൌണ്ടുകൾക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ സൌകര്യം ലഭ്യമാക്കുന്നതിനും ക്രമീകരണമുണ്ട്

ജനങ്ങൾ ജാഗ്രത തുടരേണ്ട സാഹചര്യം മുന്നിൽക്കണ്ട് ജനങ്ങളിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കുന്നത് ലക്ഷ്യമിട്ടാണ് തുടരണം ഈ കരുതൽ രണ്ടാം ഘട്ട കാമ്പയിന് രൂപം നൽകിയിരിക്കുന്നത് പൊതുസ്ഥലത്ത് തുപ്പുന്നതിനെതിരെ ശക്തമായ ബോധവത്ക്കരണമുണ്ടാക്കാൻ തുപ്പല്ലേ തോറ്റ്റൂപോകും എന്ന സന്ദേശം നൽകി ക്യാമ്പെയിൻ സംഘടിപ്പിക്കും

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യു

വിശദാംശങ്ങളുമായി ആകാശവാണി കാസർകോട് പ്രതിനിധി പി

ഇവരിൽ നാലുപേർ ചാത്തന്നൂരുമായി നേരിട്ട് ബന്ധമുള്ളവരാണ്

ഇടുക്കി ഇൻട്രോ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർദ്ധനവുണ്ടായ ഇടുക്കിയിലെ ഹോട്ട്സ്പോട്ടുകളിലും തമിഴ്നാടിനോടു ചേർന്ന പ്രദേശങ്ങളിലും പഴുതടച്ച പരിശോധനകൾ തുടരുകയാണ് വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

വിമാനത്താവളത്തിൽ പുതിയതായി ഒരുക്കേണ്ട സ്യക്ടര്യങ്ങളെക്കുറിച്ചും സംവിധാനങ്ങളെക്കുറിച്ചു്ടിച്ചുർച്ച ചെയ്യാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ച്ചേർന്നു

യാത്രക്കാർ ഒരുമിച്ചെത്തുമ്പോൾ കോവിഡ് പശ്ചാത്തലത്തിൽ വിമാനത്താവളത്തിൽ എന്തെല്ലാം സൌകര്യങ്ങൾ ആണ് കൂടുതൽ വേണ്ടത് എന്ന് വിലയിരുത്താനായിരുന്നു യോഗം

ലോക്ക്ഡൌണിനെ തുടർന്ന് നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയവരെ പുനരധിവസിപ്പിച്ചു കൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

വൈറസ് ബാധ മൂലം മരണമടഞ്ഞവരുടെ എണ്ണം ആയിരത്തി എട്ടാണ് ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർ ഇതുവരെ രോഗമുക്തി നേടിയിട്ടുണ്ട്

ഇ പരീക്ഷ പത്ത് പന്ത്രണ്ട് ക്ലാസ്സ് പരീക്ഷകൾ ലോക്ഡൌണിനു ശേഷം നടത്തുമെന്ന തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് സി

പരീക്ഷകൾ നടക്കുമോ എന്ന കാര്യത്തിൽ വിവിധ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് സി ബി എസ്

പരീക്ഷകൾ തുടങ്ങുന്നത്തിന് പ്രത്തു ദിവസം മുൻപെങ്കിലും ഇതുസംബന്ധിച്ച അറിയിപ്പ് പുറത്തുവിടുമെന്നും സി ബി എസ് ഇ വ്യക്തമാക്കി

അർബുദ ബാധയെ തുടർന്ന് രണ്ടു വർഷമായി ചികിത്സയിലായിരുന്നു അദ്ദേഹം

ബോളിവുഡിലെ റിയലിസ്റ്റിക് അഭിനേതാക്കളുടെ കൂട്ടത്തിലാണ് ഇർഫാൻ അലി ഖാന്റെ സ്ഥാനം ചെറിയ വേഷങ്ങൾക്കുപോലും തനതായ സവിശേഷതകൾ പകർന്നു നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ നാടകപഠനമാണ് തന്നെ ഇതിന് പ്രാപ്തനാക്കിയതെന്നായിരുന്നു അദ്ദേഹം അതേപ്പറ്റി പറഞ്ഞിരുന്നത്

ദ മൈറ്റി ഹാർട്ട് സ്ലം ഡോഗ് മിലൃനയർ ലൈഫ് ഓഫ് പൈ അമേസിങ്ങ് സ്പൈഡർമാൻ തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനങ്ങൾ അദ്ദേഹത്തിന് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിക്കൊടുത്തിരുന്നു ജംഗിൾബുക്കിലെ ബാലുക്കരടിയുടെ ശബ്ദമായി കുട്ടികൾക്കിടയിലും പ്രശസ്തനായിരുന്നു ഇർഫാൻഖാൻ

ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തിന് തീരാനഷ്ടമാണ് ഇർഫാൻഖാന്റെ അകാലത്തിലുള്ള വേർപാട്

തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിൽ നാളെ ഉയ്ക്കോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്